ജില്ലയിൽ അതീവ ജാഗ്രതക്ക് ഡി എം

എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ ജംഷഡ്പൂരിനെ തോൽപ്പിച്ച് ഈസ്റ്റ്ബംഗാൾ പ്ലേഓഫ് സാധ്യത സജീവമാക്കി വാർത്തകൾ വിശദമായി വാതകാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ രാജ്യത്ത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരു രാഷ്ട്രം ഒരു വാതക ഗ്രിഡ് പദ്ധതി ഈരംഗത്ത് സുപ്രധാന കാൽവെപ്പാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് പ്രകൃതി വാതകത്തിന്റെ വില കുറയ്ക്കുകയും വാതക പൈപ്പ്ലൈൻ ശൃംഖല വിപുലീകരിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ദേദ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ശക്തമായ പ്രളയദുരന്തത്തിൽ ഏഴ് പേർ മരിച്ചു ഋഷിഗംഗ വൈദ്യുതപദ്ധതിയ്ക്ക് സമീപം ഹിമപാതത്തെ തുടർന്നായിരുന്നു ദുരന്തം

രക്ഷാപ്രവർത്തനം തുടരുകയാണ് ദേശീയ ദുരന്തനിവാരണ സേനയ്ക്കുപുറമെ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന ഇൻഡോ ടിബറ്റൻ അതിർത്തി പൊലിസ് സേന തുടങ്ങിയ സംഘങ്ങളും രക്ഷാപ്രവർത്തനത്തിനുണ്ട് ഋഷികേഷ് ഹരിദ്വാർ നഗരങ്ങളിൽ ജാഗ്രത തുടരുന്നു

മീറ്റർ സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു

പരിസ്ഥിതി ലോല മേഖലകൾ വിജ്ഞാപനം ചെയ്യുമ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു ദേദ വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റും പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വയനാട്ടിൽ യു

എഫ് ഹർത്താൽ ആരംഭിച്ചു വൈകീട്ട് ആറ് മണി വരെയാണ് ഹർത്താൽ വയനാടിന്റെ പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുകയും ക്രമേണ ജനവാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജനവികാരം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹർത്താൽ നടത്തുന്നതെന്നും യു

എഫ് നേതാക്കൾ കൽപ്പറ്റയിൽ പറഞ്ഞു

ജില്ലയിൽ അതീവ ജാഗ്രത പാലിക്കാൻ ഡി എം

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ മലപ്പുറം പ്രതിനിധി എം സുരേഷ്ബാബു

നിയമത്തെകുറിച്ച് ശരിയായി മനസിലാക്കാതെ രാജ്യത്തിനകത്തും പുറത്തും രാജ്യത്തെ ഇകഴ്ത്തികെട്ടാൻ ശ്രമമാണ് നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വിവിധ സന്നദ്ധ സംഘടനകളയും സമൂഹ മാധ്യമങ്ങളെയും സെലിബ്രിറ്റികളെയും ഇതിനായി ഉപയോഗപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ബി

പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേന്ദ്ര ബജറ്റും കേരളവും ചിന്താ സായാഹ്നം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ ദേദ സംസ്ഥാനത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കുകയും നിലവിലെ അവസരങ്ങൾ പാർട്ടി അനുഭാവികൾക്കും ബന്ധുക്കൾക്കും പിൻവാതിലിലൂടെ നൽകുകയും ചെയ്യുന്ന ഗവൺമെന്റിനെതിരാവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പദവിക്ക് ചേരാത്ത ചെയ്തികളാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട സ്ഥാനത്തിരുന്ന് ഏകപക്ഷീയമായി പെരുമാറുന്ന രീതി നിയമസഭയ്ക്ക് അപമാനകരമാണെന്നും ഐശ്വര്യ കേരളയാത്രയ്ക്ക് പൊന്നാനിയിൽ നൽകിയ സ്വീകരണത്തിൽ ചെന്നിത്തല പറഞ്ഞു

എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ്

തുല്യശക്തികളായ ഇരുടീമുകളും നന്നായി കളിച്ചെങ്കിലും ഗോളൊന്നും നേടാനായില്ല സമനില നേടി ഹൈദരാബാദ് മൂന്നാം സ്ഥാനത്തേക്ക് കയറി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നാലാം സ്ഥാനത്താണ് മറ്റൊരു മത്സരത്തിൽ കരുത്തരായ ജംഷഡ്പൂരിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഈസ്റ്റ് ബംഗാൾ പ്പേഓഫ് സാധ്യത സജീവമാക്കി

സി എഫ് സി ഗോവയെ നേരിടും

ദ്ദേ കാഴ്ച പരിമിതർക്കായി നടത്തുന്ന മൂന്നാമത് നാഗേഷ് ട്രോഫി ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് ബംഗലൂരുവിൽ തുടക്കം

നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കലക്ടർ പറഞ്ഞു ദേദ കാലാനുസൃതമായ മാറ്റം എല്ലാ മേഖലകളെയും പോലെ ഗ്രന്ഥാലയങ്ങൾക്കും അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വായനക്കാരന്റെ അരികിലേക്ക് പുസ്തകങ്ങൾ എത്തുകയാണെന്നും സമൂഹത്തിലെ മാറ്റങ്ങൾ ലൈബ്രറികൾക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ വായനശാലകൾ ഹൈടെക്ക് ആയതിന്റെ പ്രഖ്യാപനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേദ പ്രാദേശിക ഉത്പന്നങ്ങൾ മൂല്യവർദ്ധിതമായി ഉത്പാദിപ്പിക്കുന്നതും അവയുടെ കയറ്റുമതിയും ലക്ഷ്യമിട്ടാണ് വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ വിപണന സംസ്കരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതെന്ന് മന്ത്രി വി

ഇടുക്കി ആലക്കോട് കലയന്താനിയിൽ ആരംഭിച്ച ചക്ക വിപണന സംസ്കരണ കേന്ദ്രം വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേദ സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിനും പുരോഗതിക്കും യന്ത്രവൽക്കരണം ഒഴിവാക്കാൻ കഴിയാത്ത ഘടകമായി മാറിയതായി മന്ത്രി വി

കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കൂത്താളി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച കാർഷികയന്ത്ര സംരക്ഷണ കേന്ദ്രത്തിന്റെയും കാർഷിക യന്ത്ര ശേഖരത്തിന്റെയും ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ദേദ കർഷർക്ക് മികച്ചതും ഗുണനിലവാരമുള്ളതുമായ വിത്ത് ലഭ്യമാക്കാൻ വിത്ത് സംരക്ഷണ കേന്ദ്രം മുഖേന കഴിയുമെന്ന് മന്ത്രി വി

സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി സഹായത്തോടെ പാലക്കാട് ആലത്തൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിത്ത് സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേദ അപേക്ഷിക്കുന്ന എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചുവരുന്നതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇടുക്കിയിൽ തൊടുപുഴ നഗരസഭയിലെയും ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെയും ശുദ്ധജല വിതരണ വിപുലീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേദ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണെന്ന് മന്ത്രി ഡോക്ടർ കെ

ജാതി മത ഭേദമന്യെ ഒത്തുചേരുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളെന്നും സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗം കൈവരിച്ച നേട്ടങ്ങൾ ലോക ശ്രദ്ധയാകർഷിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു